സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും കനത്തു

വൈകീട്ട് വിലാ പ യാ ത്ര യാ യി മൃതദേഹം രാജാജി ഹാളിൽ നിന്ന് മറീനാബീച്ചിലേക്ക് കൊണ്ടുപോകും കരുണാനിധിയുടെ സംസ്കാരം മറീനാബീച്ചിൽ നടത്താൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നല്കിയ തോടെയാണ് ഇതു സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി യത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എച്ച് ജി രമേശ് എസ് എസ് സുന്ദർ എന്നിവരടങ്ങിയ രണ്ടം ഗ ബെഞ്ചാണ് ഡി എം കെയുടെ ഇതു സംബന്ധിച്ച ഹർജി അനുവദിച്ച് ഉത്തരവിറക്കിയത് സംസ്കാരം മറീനാബീ ച്ചിൽ നടത്താൻ അനുവദിക്കണമെന്നാവശൃപ്പെട്ട് ഡി എം കെ ഇന്നല രാത്രിയാണ് കോടതിയെ സമീപിച്ചത് ലലലലലലലലലലലല പുലർച്ചെ വരെ കേസിൽ വാദം കേട്ട ഹൈക്കോടതി മറുപടി അറിയിക്കാൻ സമയം വേണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ എട്ട് മണിക്ക് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു രാവിലെ എട്ടിന് വാദം പുനഃരാരംഭിച്ചപ്പോഴും മറീനാബീച്ചിൽ സംസ്കാരം

ഡി എം കെയുടെ നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും മുഖ്യമന്ത്രിയായിരിക്കെ മരി ച്ചുവരെ മാത്രമാണ് മറീനയിൽ അടക്കം ചെയ്യുന്ന കീഴ്വഴ ക്കമെന്നും ഗവൺമെന്റ് അഭിഭാഷകൻ വാദിച്ചു മുൻമു ഖ്യമന്ത്രിമാർക്ക് മറീനയിൽ അന്ത്യവിശ്രമത്തിന് ഇടം നൽകരുതെന്ന ഒരു പ്രോട്ടോക്കോളും ഇല്ലെന്ന് ഡി എം കെ അഭിഭാഷകൻ പറഞ്ഞു ഈ വാദം അംഗീകരിച്ച കോടതി മൂന്ന് മണിക്കൂറോളം നീണ്ട വാദത്തിനുശേഷ മാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് മറീനയിൽ മൃതദേഹം അടക്കം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച അഞ്ച് ഹർജികൾ പിൻവലിച്ച സാഹചര്യ ത്തിൽ വാദം പുനഃരാരംഭിച്ചയുടൻ കോടതി തളളിയിരു ന്നു

രാവിലെ പ്രത്യേക വ്യോമ സേനാ വിമാ ന ത്തിൽ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി മൃതദേഹം പൊതു ദർശനത്തിനുവെച്ച രാജാജി ഹാളിലെത്തിയാണ് അന്ത്യാ ഞ്ജലിയർപ്പിച്ചത് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്ഥാമി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി രജനീകാന്ത് തുടങ്ങി രാഷ്ട്രീയ സിനിമാരംഗത്തെ പ്രമുഖർ ആദരാ ഞ്ജലിയർപ്പിക്കാനെത്തി അന്തരിച്ച നേതാവിനെ അവ സാനമായി കാണാൻ നേതാക്കളും അനുയായികളു മുൾപ്പെടെ ആയിരങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് രാജാജി ഹാളിലും പരിസരത്തും കനത്ത സുരക്ഷ യാണ് ഒരുക്കിയിരിക്കുന്നത്

ഗവർണർ ജസ്റ്റിസ് പി സദാശിവവും മുഖ്യ മന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തലയും ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നൈയിലേക്ക് പോകും

ലോക്സഭ യിൽ സ്പീക്കർ സുമിത്രാമഹാജനും രാജ്യസഭയിൽ അധൃക്ഷൻ എം വെങ്കയ്യനായിഡുവും കരുണാനിധിയുടെ സേവനങ്ങൾ അനുസ്മരിച്ചു ലലലലലലലലലലലലല കരുണാനിധിയുടെ മരണത്തെ തുടർന്ന് സുരക്ഷാമുൻകരുതലിന്റെ ഭാഗമായി കെ

ഡിപ്പോയിൽ നിന്നുള്ള തമിഴ് ആർ

വൈദ്യുതിചാർജും വെള്ളക്കരവും അടക്കുന്നതിന് അടുത്ത വർഷം ജനുവരി വരെ സാവകാശം നല്കും

സംസ്ഥാ നത്ത് മുമ്പൊരിക്കലുമുണ്ടായിട്ടില്ലാത്ത വെളളപ്പൊക്ക കെടു തിയാണ് ഈ വർഷമുണ്ടായതെന്നും കുട്ടനാട് മേഖലയി ലാണ് ഏറ്റവുമധികം നാശനഷ്ടവും ദുരിതവും സംഭവിച്ച തെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പൊതു മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് മാർഗ്ഗ നിർദ്ദേശങ്ങളും മന്ത്രിസഭ അംഗീകരിച്ചു കാസർകോട് മാലോത്തി കുതിരച്ചാട്ടം കണ്ണൂർ ഉരുമ്പിനി എന്നിവയുൾപ്പെടെ അഞ്ച് സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കളുടെ അനുമതി റദ്ദാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു കുട്ടനാട്ടിലെ മടവീഴ്ചയും നാശനഷ്ടവും പരിഹരിക്കു ന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറാത്ത വിവിധോ ദ്ദേശ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും മന്ത്രിസഭാ യോഗം തീരു മാനിച്ചിട്ടുണ്ട്

മലയോര മേഖലകളിൽ പലയിടത്തും ഉരുൾപൊട്ടി കണ്ണൂർ ജില്ലയിൽ എരുവേശി പയ്യാവൂർ മാട്ടറ എന്നിവിടങ്ങളിലാണ് ഉരുൾ പൊട്ടിയത്

ബാണാസുര സാഗർ പീച്ചി അണക്കെട്ടുകളുടെ ഷട്ടറുകളും കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് ഡാമുകളിലും പുഴകളിലും മറ്റും ജലനിരപ്പ് ഉയരുന്നു ണ്ടെന്നും ശക്തമായ മഴവെളളപ്പാച്ചിലന് സാധ്യതയു ണ്ടെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയി മഴ കുറിയുന്നതു വരെ ഡാമുകളിലും ച്ചു പുഴകളിലും ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തോടുചേർന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്രന്യൂനമർദ്ദമായി മാറിയതാണ് മഴയ്ക്കു കാരണം വടക്കൻ കേരളത്തിലും മധ്യകേരള ത്തിലും രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും ലലലലലലലലലലലലല മഴക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തിന് എറണാകുളം ജില്ലയിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ജില്ലാ കലക്ടർ കൈമാറി

കുന്നുകര പഞ്ചായത്തിലും ചെല്ലാനം പഞ്ചായത്തിലും സംഘം സന്ദർശനം നടത്തി മറ്റൊരു കേന്ദ്ര സംഘം ആലപ്പുഴയിൽ സന്ദർശനം തുടങ്ങി രാവിലെ ആലപ്പുഴ ഗസ്റ് ഹൌസിൽ ജനപ്രതിനിധിക്കും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് സംഘം കുട്ടനാട്ടിലേക്ക് പുറപ്പെട്ടത്

നാവികസേനയുടെയും തീരസംരക്ഷണസേനയുടെയും നാല് കപ്പലുകളാണ് തെരച്ചിലിന് നേതൃത്വം നല്കുന്ന ത് നാവിക സേനയുടെയുടെ ഡോണിയർ വിമാനങ്ങളും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് അപകടത്തിൽ ഇന്നലെ മൂന്നുപേർ മരിച്ചിരുന്നു

രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു

മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾ മുൻനിർത്തി നൽകുന്ന ജെ സി ഡാനിയൽ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും കവി ഗാനരചയിതാവ് സംവിധായകൻ എന്നീ നിലകളിൽ വൃക്തി മുദ്ര പതിപ്പിച്ച ശ്രീകുമാരൻ തമ്പിക്കാണ് ഇത്തവണത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നടൻ മോഹൻലാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും

കർണ്ണാടകയിൽ നിന്നു ളള രാജ്യസഭാംഗമാണ് ബി കെ ഹരിപ്രസാദ്

ആഗസ്ത് എട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗീകരിച്ച പുത്തൻ സമര മാർഗ ത്തിന്റെ ഭാഗമായിരുന്നു ക്വിറ്റ് ഇന്ത്യാ പ്രഖ്യാപനം മുംബൈയിലെ ഓഗസ്ത് ക്രാന്തി മൈതാനത്ത് ഗാന്ധി ജിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ആദ്യമായി ഈ മുദ്രാവാക്യമുയർന്നത് ഇന്ത്യൻ ജനത യുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി മാറിയ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ശ്രദ്ധേയ മായ മുദ്രാവാക്യത്തിന്റെ പിറവിയും കിറ്റ് ഇന്ത്യാ സമര പ്രഖ്യാപന വേദിയിലായിരുന്നു

കേരളത്തിനു പുറമെ ആഡ്ഡ്രപ്രദേശ് തെലങ്കാന കർണ്ണാടക പുതു ച്ചേരി സംസ്ഥാ ന ങ്ങ ളിൽ നിന്ന് ടീമു കൾ പങ്കെടുക്കുന്നുണ്ട്

പളളൂർ സ്വദേശികളായ എം ശ്രീജിത്ത് കെ പ്രണവ് എന്നിവരാണ് അറസ്റ്റിലായത്

ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തളളണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നൽകിയ ഹർജി ക്യോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്

പാട്ടകരാർ കഴിഞ്ഞിട്ടും തിരിച്ചുനൽകാത്ത ഭൂമിയാണ് ഹൈക്കോ ടതി ഉത്തരവ് അനു സരിച്ച് ദേവസവം ബോർഡ് ഏറ്റെടുത്തത്

ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ പാർല മെന്റിലേക്ക് നടത്തുന്ന കിസാൻ മസ്ദൂർ സംഘർഷ് റാലിയുടെ സംസ്ഥാനത്തെ പ്രചാരണ ജാഥകളുടെ പരൃടനം നാളെ തുടങ്ങും സി ഐ ടി യു സംസ്ഥാന കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് മേഖലകളിലായി സംഘടിപ്പിക്കുന്ന പ്രചാരണ ജാഥകളുടെ പര്യടനം അടുത്ത ചൊവാഴ്ച വരെ തുടരും അടുത്ത മാസം അഞ്ചിനാണ് തൊഴിലാളികളും കർഷകരും പങ്കെടു ക്കുന്ന പാർലമെന്റ് റാലി

ഗലസി തുടുക്കി വന മേഖലയിലേക്ക് മൂന്ന് ദിവസം മുൻപു പോയവരെയാണ് കാണാതായത്

നേര്യമംഗലത്തെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു താമ സിക്കാൻ എത്തിയ തിനിടെ യാ യി രുന്നു ഇയാൾ പുലർച്ചെ പിടിയിലായത് ലലലലലലലലലലലലല കണ്ണൂർ വളപട്ടണം പാലത്തിലുണ്ടായ ബൈക്കപകടത്തിൽ പാപ്പിനിശ്ശേരിയിലെ ചുമട്ട് തൊഴിലാളി മരിച്ചു അഴീക്കോട് ചാലിൽ കളത്തിൽ കാവിന് സ്റ്മീപത്തെ ബാബുവാണ് മരിച്ചത്